ആശുപത്രി മെഡിക്കൽ സ്റ്റോർ ലബോറട്ടറി അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പ്രവർത്തിക്കാം ഹോട്ടലുകളിലെ പാർസൽ കൌണ്ടറുകൾ രാവിലെ എട്ട് മുതൽ രാത്രി ഒമ്പതുവരെയും ഓൺലൈൻ വിതരണം രാത്രി പത്തുവരെയും അനുവദിക്കും

ആദ്യമായാണ് സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ആയിരം കടക്കുന്നത്

പത്തനംതിട്ട ജില്ലയിൽ ഒമ്പതും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ നാലു പേർക്ക് വീതവും തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ജില്ലകളിൽ മൂന്നു പേർക്ക് വീതവുമാണ് കോവിഡ് ബാധിച്ചത് കോട്ടയത്ത് രണ്ടു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു

പാലക്കാട് ജില്ലയിൽ ഏഴു പേർക്കും മലപ്പുറം ജില്ലയിൽ രണ്ടു പേർക്കും തൃശൂർ ജില്ലയിൽ ഒരാൾക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നീരജ്ലാൽ

ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് നൽകുന്ന റിപ്പോർട്ട്

ശശിധരൻ

ജില്ലാ ആശുപത്രിയിലെ അഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്

രുമ ആലപ്പുഴ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച നാലു പേരിൽ മൂന്നുപേർ വിദേശത്തുനിന്നും ഒരാൾ മുംബൈയിൽനിന്നും എത്തിയവരാണ്

രുമ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച നാല് പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ് കോവിഡ് ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ചികിത്സയിലായിരുന്ന ഫറോക്ക് സ്വദേശിയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കണ്ണൂരിലെ ആറ് എയർഇന്ത്യാ ജീവനക്കാരും രോഗമുക്തി നേടി രുര എറണാകുളം ജില്ലയിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ മഹാരാഷ്ട്ര സ്വദേശിയും രണ്ടു പേർ കൂനമ്മാവ് ഉദയംപേരൂർ സ്വദേശികളുമാണ്

ചികിത്സയിൽ ആയിരുന്ന അഞ്ചു പേർ രോഗമുക്തി നേടി ആശുപത്രിവിട്ടു

ഇതിൽ രണ്ടു പേരേയും ക്വാറന്റയിനിൽ കഴിയുന്ന രണ്ടു പേരെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഐ

യുവിലേക്ക് മാറ്റിയതായി മെഡിക്കൽ കോളജ് അധികൃതർ അറിയിച്ചു

രുര കോട്ടയം ജില്ലയിൽ മുംബൈയിൽനിന്നും ഈ മാസം രണ്ടിന് എത്തിയ ഒളശ്ശ സ്വദേശിക്കും ഈ മാസം നാലിന് ഡൽഹിയിൽ നിന്നെത്തിയ അറുന്നൂറ്റി മംഗലം സ്വദേശിക്കുമാണ് രോഗം ബാധിച്ചത്

രുമ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് എറണാകുളത്ത് മുസ്ലിം പള്ളികൾ ഉടൻ തുറക്കേണ്ടെന്ന് സംയുക്ത മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കിയ ശേഷം മാത്രം പള്ളികൾ തുറക്കുന്ന കാര്യം ആലോചിക്കാനാണ് തീരുമാനം ആരാധാനയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിർദേശങ്ങൾ ഉറപ്പു വരുത്താൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം രുദ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയുന്ന കമ്മിറ്റികൾക്ക് പള്ളികൾ ആരാധനയ്ക്കായി തുറന്നു കൊടുക്കാമെന്ന് കെ

എം സംസ്ഥാന പ്രസിഡണ്ട് ടി

മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നവർ പള്ളി തുറക്കുന്നത് നീട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു

രുഭ കേസംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ദേദ മലയോരമേഖലയിൽ ശനിയാഴ്ച രാവിലെമുതൽ പെയ്ത കനത്ത മഴയിൽ ചാലിയാറിലും പോഷകനദികളിലും ജലനിരപ്പുയർന്നു കാഞ്ഞിരപ്പുഴയിലും കുറുവൻപുഴയിലും മലവെള്ളപ്പാച്ചിൽ തുടരുന്നു ആദിവാസി കോളനികളിൽ ജാഗ്രതാ നിർദേശം നൽകി

രുമ വിക്ടേഴ്സ് ചാനൽ വഴിനടത്തുന്ന ഓൺലൈൻ പഠനം കുറ്റമറ്റ രീതിയിൽ നടക്കുന്നുവെന്ന് ഉറപ്പു വരുത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു

രുമ ദേവികുളം താലൂക്കിലെ വിവിധ കുടികളിൽ ഓൺലൈൻ പഠന സൌകര്യം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താൻ അധ്യാപകർ നേരിട്ടെത്തി ആദിവാസി മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൌകര്യം ഉറപ്പു വരുത്തുന്നതിന്റെ ഭാഗമായാണ് അടിമാലി ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരുടെ സംഘം കുടികൾതോറും സഞ്ചരിച്ചത്